പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശനം നടത്തും

പ്രാർത്ഥനാ നിരതരായി വിശ്വാസികൾ

ഐ

നാളെ തുടക്കമാകും

ഹിന്ദി ഹൃദയഭൂമിയിലെ നിർണായക മണ്ഡലങ്ങളിലാണ് എന്ന് വിധിയെഴുത്ത് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

അമേഠി റായ്ബറേലി ല്ക്നൌ ഫത്തേപൂർ ഫൈസാബാദ് സിതാപൂർ എന്നീ മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടും

ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ലഡാക്ക് പുൽവാമ ഷോപ്പിയാൻ എന്നിവിടങ്ങളിലും ഇന്നാണ്വോട്ടെടുപ്പ്

കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് സ്മൃതി ഇറാനി രാജ്യവർദ്ധൻസിംഗ് റാത്തോഡ് അർജ്ജുൻ റാം മേഘാൾ ജയന്ത് സിംഹ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ജിതിൻ പ്രസാദ് എന്നിവർ ഈ ഘട്ടത്തിൽ ജനവിധിതേടുന്ന പ്രമുഖരാണ്

ഭൂമിശാസ്ത്രപരമായി രാജ്യത്തെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് ഹിമാലയൻ താഴ്വര മേഖലയായ ലഡാക്ക്

ഇതിൽ അഞ്ച് എണ്ണം ധുബ്ര ലോക്സഭാ മണ്ഡലത്തിലും രണ്ട്എണ്ണം കൊക്രഝാർ ലോക്സഭാ മണ്ഡലത്തിലുമാണ് മൂന്നാം ഘട്ടത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടന്നത്

രാജ്യത്തീള്ന്റ് വിവിധ ഭാഗങ്ങളിലായി രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേത്രാക്കൾ പൊതുസമ്മേളനങ്ങളും റോഡ് ഷോകളും സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ തുട്ലുക് ഝാർഗ്രാം ഝാർഖണ്ഡിലെ ചയ്ബസാ എന്നിവിടങ്ങളിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ ഫിവാനിയിലും ബി എസ് പി നേതാവ് മായാവതി ഉത്തർ പ്രദേശിലെ ബസ്തി ബൽറാംപൂർ എന്നിവിടങ്ങളിലും പൊതു സമ്മേളനങ്ങളിൽ പങ്കെടുക്കും

തലസ്ഥാനമായ ഭുവനേശ്വറിൽ എത്തുന്ന പ്രധാനമന്ത്രി ചുഴലിക്കാറ്റ് നാശം വിതച്ച പുരി ഖുർദ കട്ടക് ജഗദ്സിങ്പൂർ ജാജ്പൂർ കേന്ദ്രപാറ ഭദ്രക് ബാലസോർ എന്നീ ജില്ലകളിൽ ആകാശനിരീക്ഷണം നടത്തും തുടർന്ന് പ്രധാനമന്ത്രി സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും

ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റി ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം കാബിനറ്റ് സെക്രട്ടറി പി

സിൻഹയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഫൊനി ചുഴലിക്കാറ്റ് നാശം വിതച്ച പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും യോഗം വിലയിരുത്തി

എ ഗവൺമെന്റ് ദുരിതപർവ്വത്തിലെത്തിച്ചത്യായി ് മുൻ പ്രധാനമന്ത്രി ഡോ

ഐ വാർത്താ ഏജൻസിയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഡോ

സിങ്ങിന്റെ വിലയിരുത്തൽ മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ധനകാര്യമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞു

ഷക്കീൽ അഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കി

കോൺഗ്രസ്റ്റിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ബീഹാറിലെ മധുബനി മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായതിന്റെ പേരിലാണ് നടപടി

എസ് എൽ

ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലൂടെ ഫലം വേഗത്തിലറിയാം

നെതർലാന്റ്സ് സ്വിറ്റ്സർലന്റ് എന്നിവിടങ്ങളിലെ മലയാളി കൂട്ടായ്മയുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും

എസ് എഫ് ഇ യുടെ പ്രവാസി ചിട്ടിയിൽ ബ്രിട്ടണിലെ മലയാളികളെ പങ്കാളികളാക്കുന്ന ചടങ്ങും ലണ്ടനിൽ സംഘടിപ്പിക്കുന്നുണ്ട്

കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി ദൃശ്യമായതിനാൽ റംസാൻ വ്രതം ആരംഭിച്ചതായി വിവിധ ഖാസിമാർ അറിയിച്ചു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് റംസാൻ ഒന്ന്

ഖുർ ആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ റംസാനിൽ വിശ്വാസികൾ പുലർച്ചെ മുതൽ സന്ധ്യ വരെ അന്നപാനീയങ്ങൾ ഒഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കും

രണ്ട് കുട്ടികളും മുരിച്ചവരിൽ ഉൾപ്പെടുന്നു

സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്ത്രവിട്ടു്

വ്യാപാര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി

മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ്നിലവിലെ ജേതാക്കളായ ചെന്നൈയെ തോൽപ്പിച്ചു ജയിച്ചെങ്കിലും പഞ്ചാബിന് പ്പേ ഓഫിൽ എത്താനായില്ല നാളെ ചെന്നൈയിൽ നടക്കുന്ന ആദ്യ ക്വാളിഫൈയർ മത്സരത്തിൽ മുംബൈ ചെന്നൈയുമായി ഏറ്റുമുട്ടും പോയിന്റ് പട്ടികയിൽ മൂന്നാമതായ ഡൽഹി ക്യാപിറ്റൽസ് ബുധനാഴ്ച വിശാഖപട്ടണത്ത് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

എസ് ആർ ടി സി തിരുവനന്തപുരം തൃശൂർ റൂട്ടിൽ ഇന്നു മുതൽ സൂപ്പർഫാസ്റ്റ് ചെയിൻ സർവ്വീസുകൾ ആരംഭിക്കും പൊതുഗതാഗത സംവിധാനത്തിൽ ആദ്യമായാണ് ദീർഘദൂര ചെയിൻ സർവ്വീസ് ആരംഭിക്കുന്നത്

ജാനകി ശസ്ത്രക്രിയയ്ക്കു ശേഷം ആശുപത്രി വിട്ടു മൂന്ന് ആഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് മൈസൂരിലെ ബന്ധുവീട്ടിലെത്തിയ പ്പോഴായിരുന്നു അപകടം

ഫോനി ചുഴലിക്കാറ്റ് ദുർബലമായതോടെ പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് കുറുകെയെത്തി മഴയ്ക്ക് കാരണമാകാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ ഇന്നും നാളെയും ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്